പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചവരെ നിർത്തിവച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹുമായി ഇന്ന് പ്രതിനിധിതല ചർച്ച നടത്തും

ഫെത്തായ് ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയോടുകൂടി ആന്ധ്രാതീരം തൊടും

സി ബി ഐയും കലാപത്തിലെ ഇരകളും ്സ്മർപ്പിച്ച അപ്പീലിലാണ് നടപടി

ഡൽഹി കന്റോൺമെന്റിലെ രാജ്നഗർ മേഖലയിൽ ഒരു കുടുംബത്തിലെ അഞ്ച് പേർ കൊല്ലപ്പെട്ട കേസിലാണ് വിധി

നിരവധി കലാപകാലത്ത് സിഖ് മതക്കാർ പീഡനങ്ങൾക്കിരയായതായി ശ്രീ നഖ്വി പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

ഇത് ആദ്യമായാണ് സച്ചിൻ പൈലറ്റ് നിയമസഭാംഗവും കോൺഗ്രസ് അധ്യക്ഷൻ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിങ് ലോക്സഭയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു

തുടർന്നുള്ള ദിവസങ്ങളിൽ പാർട്ടി കേന്ദ്ര നേതൃത്വവുമായുള്ള ആലോചനകൾക്ക് ശേഷം മന്ത്രിസഭ വികസിപ്പിക്കും ചിന്ദ്വാര മണ്ഡലത്തിൽ നിന്ന് ഒമ്പത് തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കമൽനാഥ് അവസാനവട്ട പിരിമുറുക്കങ്ങൾക്കൊടുവിലാണ് നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്

ഛത്തീസ്ഗഡിലെയും ഗവർണറായ ആനന്ദിബെൻ പട്ടേൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കും റായ്പൂരിലെ സയൻസ് കോളേജ് മൈതാനിയിലാണ് ചടങ്ങ് പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ശ്രീ ബഗേൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിനുള്ള കത്ത് ഗവർണർക്ക് കൈമാറിയിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുമായും പാർട്ടി എം

എ മാരുമായും നടന്ന നാല് ദിവസത്തെ മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് എ ഐ സി സി നിരീക്ഷകനായ മല്ലികാർജ്ജുന ഖാർഗെ ഇന്നലെ ബാഗേലിന്റെ പേര് നിർദ്ദേശിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി യു

എ അധ്യക്ഷ സോണിയ ഗാന്ധി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും

റഫാൽ യുദ്ധ വിമാന ഇടപാടിൽ സംയുക്ത പ്പാർലമെന്ററി സമിതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ സഭ സമ്മേളിച്ച ഉടൻ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു ഇടത് ആർ ജെ ഡി മറ്റ് പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു അതേസമയം വിഷയത്തിൽ കോൺഗ്രസ് രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചതായും ശ്രീ രാഹുൽഗാന്ധി മാപ്പ് പറയണമെന്നും ഭരണകക്ഷി അംഗങ്ങൾ ആവശ്യപ്പെട്ടു

തുടർന്ന് സ്പീക്കർ സുമിത്ര മഹാജൻ സഭ ഉച്ചവരെ നിർത്തിവച്ചതായി അറിയിച്ചു

സഭ സമ്മേളിച്ച ഉടൻ അംഗങ്ങൾ പ്ലക്കാർഡുകൾ ഉയർത്തി നടുത്തളത്തിലിറങ്ങി ഉടൻ തന്നെ രാജ്യസഭ അധ്യക്ഷൻ എം വെങ്കയ്യ നായിഡു സഭ ഇന്നത്തേയ്ക്ക് പിരിഞ്ഞതായി അറിയിച്ചു ബഹളത്തിനിടയിലും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എം പിയുമായ ഗുലാം നബി ആസാദ് റഫാൽ ഇടപാട് സംബന്ധിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു വിഷയത്തിൽ ഗവൺമെന്റ് സുപ്രീംകോടതിയെ തെറ്റിദ്ധൂരിപ്പിച്ചതായും അദ്ദേഹം ആരോപിച്ചു

പാർലമെന്റിന്റെ ഇരുസഭകളിലും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചതാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

ന്യൂഡൽഹിയിൽ നിതി അയോഗ് സംഘടിപ്പിച്ച സ്ത്രീ ശാക്തീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വിജയകരമാണെന്നതും തൊഴിൽ വേതനം തുടങ്ങി ഒരു വിഷ്യത്തിലും സ്ത്രീകളോട് വിവേചനം പാടില്ലെന്നും ഉപരാഷ്ട്രപ്പതി പറഞ്ഞു

ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലെ അന്റാവയിലെ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി തങ്ങളുടെ വരുതിയിൽ നിൽക്കാത്ത ഓരോ സംവിധാനങ്ങളെയും ദുർബലപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ശ്രീ മോദി ആരോപിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലിയിൽ ഒരു മാസം മുമ്പ് നടന്ന സോലിഹിന്റെ സത്യപ്രതിജ്ഞാചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവുമായും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായും ശ്രീ സോലിഹ് കൂടിക്കാഴ്ച നടത്തും ഇന്ന് വൈകുന്നേരം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹം സന്ദർശിക്കും മാൽദ്വീപിന്റെ പ്രമുഖ വികസന പങ്കാളിയാണ് ഇന്ത്യ

ദ്വീപിലെ പ്രവാസികളുടെ എണ്ണത്തിൽ ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വൈകുന്നേരം വിദേശകാരൃമന്ത്രി സുഷമ സ്വരാജുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും

ഇന്ത്യയ്ക്കുവേണ്ടി മുഹമ്മദ് ഷമി ആറും ബുംമ്ര മൂന്നും വിക്കറ്റുകൾ നേടി

രാഹുലിന്റെയും ചേതേശ്വർ പൂജാരയുടെയും ലോകേഷ് വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടപ്പെട്ടത്